രാജ്യത്ത് ഇ സിഗറ്റുകൾ നിരോധിക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കി

ഇന്ന് ലോക ഭിന്നശേഷി ദിനം ഭിന്നശേഷി ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനത്തിന് നൽകുന്ന ദേശീയ പുരസ്കാരം ഉപ രാ ഷ്ട്ര പതി എം വെങ്കയ്യ നായിഡു മന്ത്രി കെ

ശൈലജക്ക് രാവിലെ സമ്മാ നിക്കും ലോകത്തെ മികച്ച ഫൂട്ബോൾ താരത്തിന് നൽകുന്ന ബാലൺദ്യോർ പുരസ്കാരം ലയണൽ മെസ്റ്റിക്ക്

ചന്ദ്രോപരിതലത്തിൽ ലാന്റർ പതിച്ച മേഖലയുടെ ദൃശൃങ്ങൾ നാസ പുറത്തുവിട്ടു നാസയുടെ ലൂണാർ ഓർബിറ്റർ ക്യാമറയാണ് ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തത് ലാന്റർ പതിക്കുന്നതിന് മുമ്പും ശേഷവും ചന്ദ്രോപരിതലത്തിലുണ്ടായ മാറ്റ ങ്ങൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സെപ്റ്റംബർ ഏഴിനാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് വിക്രം ലാന്ററുമായി ഐഎസ്ആർഒക്ക് ബന്ധം നഷ്ട മായത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പുതിയി നിക്ഷേപങ്ങൾ ആകർഷിക്കാനുമാണ് കോർപ്പറേറ്റ് നികുതി കുറച്ചതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വൃക്തമാക്കി ഒട്ടേറെ വിദേശ ആഭ്യന്തര സ്ഥാപനങ്ങൾ നിക്ഷേപത്തിൽ താൽപര്യം പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടു ണ്ടെന്നും അവർ അറിയിച്ചു ലോക്സഭയിൽ നികുതി നിയമഭേദഗതി ബില്ലിൻമേൽ നടന്ന ചർച്ചക്ക് മറുപടി പറയുകയായിരുന്നു ധനമ ന്ത്രി നിലവിലെ സാമ്പത്തിക മാന്ദ്യം നേരിടാൻ മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻസിങ്ങിൽ നിന്ന് ഗവൺമെന്റ് ഉപദേശം തേടണമെന്ന് കോൺഗ്രസ് നേതാവ് അധിർരഞ്ജൻ ചൌധരി ആവശ്യപ്പെട്ടു രാജ്യ ത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രതിപക്ഷ അംഗങ്ങൾ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ബിൽ പിന്നീട് സഭ ശബ്ദവോട്ടോടെ പാസാക്കി ഇ സിഗററ്റുകൾ നിരോധിക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കി ഇ സിഗററ്റുകളുടെ ഉൽപ്പാദനവും വിപണനവും വിതരണവും സൂക്ഷിപ്പും പരസൃങ്ങളും നിരോധിക്കുന്ന ബിൽ ശബ്ദവോട്ടോടെ യാണ് രാജ്യസഭ അംഗീകരിച്ചത് നേരത്തെ ബിൽ ലോക്സഭ പാസാ ക്കിയിരുന്നു

മണി പറഞ്ഞു

വിളയൂരിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് രൂപീകരണം സഹകരണ ബാങ്കുകൾക്ക് പുത്തൻ ഉണർവ് നൽകിയതായി മന്ത്രി കെ

പാലക്കാട് പൊൽപ്പുള്ളി സർവ്വീസ് സഹികരണ ബാങ്ക് കൊടുമ്പ് ശാഖയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയാ യിരുന്നു മന്ത്രി പൊതുവിദ്യാഭ്യാസ സംരക്ഷണയജ്ഞത്തിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് ഫലപ്രദമായ ഇടപെടൽ നടത്താൻ ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി എ

പാലക്കാട് കോട്ടായി ഗവർണമെന്റ് ഹയർ സെക്കൻഡറി സ് കൂളിന്റെ കെട്ടിട നിർമാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് ലോക ഭിന്നശേഷി ദിനം

ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരമാവധി ഇല്ലാ താക്കി അവരെ സാധാരണ ജീവിതത്തിലേയ്ക്ക് നയിക്കുക എന്ന ലക്ഷ്യം കൂടി ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നു ഭിന്നശേഷി ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനത്തിന് നൽകുന്ന ഈ വർഷത്തെ ദേശീയ പുരസ്കാരം രാവിലെ ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഉപരാ ഷ്ട്രപതി എം വെങ്കയ്യ നായിഡു കേരളത്തിന് സമ്മാനിക്കും മന്ത്രി കെ

ശൈലജ പുരസ്കാരം ഏറ്റുവാങ്ങും

ശാരീരിക പരിമിതികൾ മറന്ന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയ സംസ്ഥാനത്തെ അഞ്ച് ഭിന്നശേഷിക്കാർ ഉപരാഷ്ട്രപതി യിൽ നിന്ന് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങും കാഴ്ച്ച പരിമിതി യിൽ മികച്ച വനിതാ ജീവനക്കാരുടെ വിഭാഗത്തിൽ ബേബി ഗിരിജ പുരുഷ വിഭാഗത്തിൽ ബാലൻ പൂത്തേരി സർഗാത്മക ഭിന്നശേഷി വനിതാ വിഭാഗത്തിൽ എസ് കൺമണി പുരുഷ വിഭാഗത്തിൽ ആർ രാഗേഷ് കുമാർ മൾട്ടിപ്പിൾ ഡിസെബിലിറ്റി വിഭാഗത്തിൽ സി പ്രശാന്ത് എന്നിവരാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒട്ടേറെ മലയാളികളും അവാർഡിന് അർഹരായിട്ടുണ്ട്

തിരുവനന്തപുരം കൈതമുക്കിൽ പട്ടിണി സഹിക്കാനാവാതെ നാലുമക്കളെ അമ്മ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി ആറ് മക്കളിൽ നാലു മക്കളുടെ സുരക്ഷ ഏറ്റെടുക്കണമെന്നാവശൃപ്പെട്ട് അമ്മ കത്തെ ഴുതിയതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതി ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു ഭർത്താവ് മദൃപനാണെന്നും കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ കഴി യുന്നില്ലെന്നും ശിശുക്ഷേമ സമിതിക്ക് അയച്ച കത്തിൽ കുട്ടികളുടെ അമ്മ വിവരിച്ചു വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒരു കൂട്ടി മണ്ണ്വാരി തിന്നുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് മക്കളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നതെന്ന് അവർ കത്തിൽ പറഞ്ഞു ഇതേതുടർന്ന് ഇന്നലെ വൈകീട്ട് ഇവരുടെ താമസ സ്ഥലത്തെ ത്തിയ ശിശുക്ഷേമ സമിതി അംഗങ്ങൾ നാലു മക്കളെ ഏറ്റെടുക്കുക യായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവരുടെ വീട് സന്ദർശിച്ചു ദാരിദ്ര്യം കാരണം മണ്ണ് തിന്നേണ്ടി വന്ന അവസ്ഥ സംസ്ഥാനത്തിന് അപമാനകരമാണെന്നും ഗവൺമെന്റ് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കുട്ടികളുടെ വിദ്യാഭ്യാസവും ചികിത്സയും ഗവൺമെന്റ് ഏറ്റെ ടുക്കുമെന്ന് മന്ത്രി കെ

ഇന്ത്യൻ നാവിക സേനയുടെ ആദ്യ വനിതാ പൈലറ്റായി ബിഹാർ മുസാഫർപൂർ സ്വദേശി ലഫ്റ്റനന്റ് ശിവാംഗി ചുമതലയേറ്റു കൊച്ചി നാവികസേനാ ആസ്ഥാനത്ത് മുതിർന്ന നാവികസേനാ ഉദ്യോഗസ്ഥ രുടെ സാന്നിധ്യത്തിലായിരുന്നു ശിവാംഗി പൈലറ്റായി ചുമതലയേറ്റ ത്

കാലിക്കറ്റ് പ്രസ്സ്ക്ലബ്ബിന്റെ മാധ്യമ അവാർഡുകൾ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ലോകത്തെ മികച്ച ഫുട്ബോൾ ്താരത്തിന് നൽകുന്ന ബാലൺദ്യോർ പുരസ്കാരം അർജന്റീനിയൻ താരം ലയണൽ മെസ്സി നേടി ആറാം തവണയാണ് മെസ്സി ഈ നേട്ടം സ്വന്തമാക്കുന്നത്

ബ്രസീലിന്റെ അലി സണെ ഏറ്റവും നല്ല ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു

കിഡംബി ശ്രീകാന്ത് നയിച്ച പുരുഷ ടീമും ഗായത്രി ഗോപീചന്ദ് ഉൾപ്പെട്ട വനിതാ ടീമും ഫൈനലിൽ ശ്രീലങ്കൻ ടീമുകളെ തോൽപ്പിച്ചാണ് സ്വർണം നേടിയത് ഐഎസ്എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിലായി ജംഷഡ്പൂരിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി കണ്ണൂരിൽ നാലാമത് ദേശീയ സീനിയർ ബോക്സിങ്ങ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ അനന്യ സാബുവും അഞ്ജു ദാസും രണ്ടാം റൌണ്ടിൽ കടന്നു പത്ത് ഭാരവിഭാഗങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ചാമ്പ്യൻഷിപ്പ് സ്പീക്കർ പി ശ്രീരാമകൃ ഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കാഴ്ച്ച പരിമിതർക്കായി രാജസ്ഥാനിലെ ഉദയപൂരിൽ നടക്കുന്ന അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ കേരളം ഇന്ന് രാജസ്ഥാനെ നേരിടും പ്രാഥമിക ഘട്ട മത്സരങ്ങളിൽ മധ്യപ്ര ദേശിനെയും ഗുജറാത്തിനെയും പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ എത്തിയത് കോഴിക്കോട് മുക്കത്ത് സമാപിച്ച ഇരുപതാമത് സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലബാർ മേഖലാ അത്ലറ്റിക്സ് മീറ്റിൽ കോഴിക്കോട് ദയാപുരം റസിഡൻഷ്യൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി

സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നിലനിർത്തിയ പാലക്കാട് ജില്ലാ ടീമിന് ഇന്ന് രാവിലെ നഗരത്തിലെ മോയൻ സ ്കൂളിൽ സ്വീകരണം നൽകും ജന പ്രതിനിധികൾ പങ്കെടുക്കും ഘോഷയാത്രയും ഉണ്ടാകും

ബിപിസിഎൽ അധികൃതരും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ജില്ലാ കലക്ടർ എസ് സുഹാസ് നട ത്തിയ അനുരഞ്ജന ചർച്ചയെ തുടർന്നാണ് തീരുമാനം ബിപിസി എ ൽ പമ്പു ക ളിൽ ജനുവരി രണ്ടിന് മുമ്പായി സിസിടിവി കൃാമറകൾ സ്ഥാപിക്കുമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ട പ്രാഥമിക സൌകരൃങ്ങളെല്ലാം ഏർപ്പെടു ത്തുമെന്നും കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതായി ജില്ലാ കല ക്ടർ അറിയിച്ചു രാഹുൽ ഗാന്ധി എംപി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പര്യ ടനത്തിനായി നാളെ രാത്രി കോഴിക്കോട്ടെത്തും

മറ്റന്നാൾ രാവിലെ മലപ്പുറം ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം വൈകീട്ട് കോഴിക്കോട് മുക്കത്തും കോടഞ്ചേരിയിലും പരിപാടികളിൽ സംബ ന്ധിക്കും സ്കൂളിൽ പാമ്പുകടിയേറ്റ് മരിച്ച ബത്തേരിയിലെ ഷഹല യുടെ വീടും സർവ്വജന സ്കൂളും വെള്ളിയാഴ്ച്ച രാവിലെ രാഹുൽ സന്ദർശിക്കും ശനിയാഴ്ച്ച വൈകീട്ട് കണ്ണൂരിൽ നിന്നും ഡൽഹിക്ക് തിരിച്ചുപോ കും പൊതു വിദ്യാലയങ്ങളിൽ പഠിച്ചാൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയില്ലെന്ന സമൂഹത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ സാധി ച്ച തായി രാമ ച ന്ദ്രൻ പ മന്തി െ കട ന്ന പ്പള്ളി പറഞ്ഞു കണ്ണൂർ ഗവൺമെന്റ് ടിടിഐ ആന്റ് മോഡൽ യുപി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങളും പരിസരവും ലഹരി വിമു ക്തമാക്കാൻ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ

സുമേഷ് അറിയിച്ചു കുട്ടിക ളിൽ ലഹരിയുടെ ദൂഷ്യഫലത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കു ന്നതിനായി ജില്ലയിലെ സ്കൂളുകളിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃ ത്വത്തിൽ ചായക്കട എന്ന പേരിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും

പത്ത് ദിവസത്തെ മേളയിൽ അനൃം നിന്നുകൊണ്ടിരി ക്കുന്ന തനതു കലകളുടെ അവതരണവും പട്ടിക ജാതി പട്ടിക വർഗ ത്തിൽപ്പെട്ടവരുടെ കരകൌശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവുമുണ്ടാ കും കയറിന്റേയും പ്രകൃതിദത്ത നാരുകളുടേയും അന്തർദേശീയ മേള യായ കേരളയുടെ എട്ടാം പതിപ്പിന് ഇന്ന് ആലപ്പുഴയിൽ തുടക്കമാ കും രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും

അടിമാലിയിൽ ദേവിയാർ പുഴയുടെ സംര ക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പച്ചപ്പ് മണ്ണിനും മനുഷ്യനുമെന്ന പദ്ധ തിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കണമെന്നാവശൃപ്പെട്ട് റോഷി അഗസ്റ്റിൻ എംഎൽഎ കട്ടപ്പനയിൽ നടത്തിയ അനിശ്ചിതകാര നിരാ ഹാര സമരം മുഖൃമന്ത്രി സർവ്വകക്ഷി യോഗം വിളിച്ചതിനെ തുടർന്ന് അവസാനിപ്പിച്ചു